ഔദ്യോഗിക മാധ്യമത്തിൽ ഖാലിസ്ഥാൻ വിഘടനവാദി ഭിന്ദ്രൻവാലെയെ കാണിക്കുന്നതിൽ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു

ഇന്ത്യ നിക്ഷേപക സൌഹൃദ രാജ്യങ്ങളിൽ ഒന്നായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്ത്യയ്ക്ക് എട്ട് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം

സംസ്ഥാന നിയമസഭയുടെ കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കേ സജീവമായ ചർച്ചകളിലാണ് ബിജെപിയും ശിവസേനയും

മുഖ്യമന്ത്രിപദം രണ്ടരവർഷം വീതം വീതിച്ച് നൽകണമെന്ന ശിവസേനയുടെ ആവശ്യം ബിജെപി തള്ളിയതോടെ ഗവൺമെന്റ് രൂപവത്ക്കരണ ചർച്ച എങ്ങുമെത്താതെ തുടരുകയാണ് അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചിരു കാല്യളവുകളിലേക്കായി പങ്കിടണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്പ്പിയില്ലെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌട്ട് ആവർത്തിച്ച് വ്യക്തമാക്കി ്തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാരുമായി പാർട്ടി തുല്വിൻ ഉദ്ദവ് താക്കറെ ചർച്ച നടത്തിയെന്നും അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും പിന്തുണയ്ക്കുമെന്നും എം

മാർ ഉറപ്പു നൽകി എന്നും ശ്രീ

സംസ്ഥാന മുഖ്യമന്ത്രി ശിവ്സേനയിൽ നിന്ന് തന്നെ ആയിരിക്കുമെന്ന് ശ്രീ

മഹാസംഖ്യത്തിന് വേണ്ടിയായിരുന്നു ജനവിധി എങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് രൂപീകരണ അവകാശം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു

ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ആഗോള നിക്ഷേപക സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി വിശദാംശങ്ങളുമായി ലിഖിത വിജയൻ

ഓരോ വർഷവും ഇന്ത്യ മെച്ചപ്പെട്ട് കൊണ്ടിരിക്കുക ആണ് വ്യവസായങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ എന്താണെന്ന് വിലയിരുത്തി ഗവൺമെന്റ് തീരുമാനം എടുക്കുന്നതിനാലാണ് ഇത് സമ്പദ്വൃവസ്ഥയിലെ അടിസ്ഥാനഘടകങ്ങൾ ദുർബലമാകാൻ അനുവദിക്കാത്തതിനാലാണ് ഇന്നത്തെ ആഗോള സാഹചര്യത്തിലും ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ നിക്ഷേപകർക്ക് അനുകൂലമായ നിരവധി നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു നിക്ഷേപകർക്ക് അനുകൂലമായ അന്തരീക്ഷം ഒരുക്കാൻ ഇന്ന് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കുകയാണ് ഈ ആരോഗൃകരമായ മത്സരം ആഗോള തലത്തിൽ നമ്മുടെ വ്യവസായങ്ങളെയും മത്സരത്തിന് പ്രാപ്തമാക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

തീർത്ഥാടന ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ പാക് നടപടിയിൽ ഇന്ത്യ അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നതായി വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു തീർത്ഥാടനത്തിനിടെ ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങൾ ഉണ്ടാവില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിച്ച് ഉറപ്പു നൽകിയിരുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയ്ക്ക് ഹിതകരമല്ലാത്ത വീഡിയോയും ലഘുലേഖകളും പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഗുരുനാനക് ദേവിന്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന നൂറു ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് ജമ്മുവിലെ ഒരു കുടുംബത്തിലെ സ്വകാര്യ ശേഖരത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്

ആസാം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാളുമായി ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ശ്രീ

നാഗാ ചർച്ച ആസമിലെ ചില മേഖലകളെ ബാധിക്കുമെന്ന ചില മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം

കനത്ത മഞ്ഞിൽ റോഡ് വൃക്തമായി കാണാത്തതിനെ തുടർന്ന് വാഹനം തെന്നിയുണ്ടായ അപകടത്തിലാണ് ജവാൻമാർ വീരമൃത്യു വരിച്ചത് മറ്റ് രണ്ട് ജ്വാൻമാർക്ക് അപകടത്തിൽ പരിക്കേറ്റു

ജിമ്മു്പിനെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന ദേശീയപാത അടച്ചു

വടക്കൻ ത്രിപുരയിലെ സഞ്ചാരമാർഗ്ഗ കൃാമ്പുകളിൽ കഴിയുന്ന അന്തേവാസികൾക്ക് റേഷൻ വിതരണം ചെയ്യും എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണിത്

ഭീകരവാദ പ്രവർത്തനങ്ങളെയും ഭീകരവാദ ധനസഹായത്തെയും പിന്തുണയ്ക്കുന്നവർക്കെതിരെ ആഗോള ഐക്യം വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ചില രാജ്യങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് നൽകിയ നിശ്ശബ്ദ പിന്തുണയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ജി കിഷൻ റെഡ്ഡി ആശങ്ക അറിയിച്ചു ഭീകരപ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്ന വിഷയത്തിൽ മെൽബണിൽ നടന്ന സമ്മേളനത്തിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പങ്കുവച്ചത്

വടക്ക് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് നാളെയോടെ ഉത്തരമേഖലയിലേക്ക് നീങ്ങും ഒഡീഷ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ പ്രശ്നബാധിത മേഖലകളിലെ ജനങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്നും ഇന്ന് മുതൽ മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകി

ബുൾബുൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷയിലെ പുരി കേന്ദ്രാപാറ ജഗത്ത്സിങ്പ്പൂർ ജില്ലകളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് മുൻകിരുതൽ നടപടികളുടെ ഭാഗമായി മൂന്ന് ജില്ലകളിലെയും അങ്കനവുടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധിക്ടുതുർ രണ്ട് ദിവസത്തേയ്ക്ക് അവധി നൽകി

രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ സൈനികർക്കും പൌരൻമാർക്കും അദ്ദേഹം ആദരാഞ്ജലി അർപ്പിച്ചു

രാജ്നാഥ് സിങ്ങിന്റെയും റഷ്യൻ പ്രതിരോധമന്ത്രി സെർജി ഷോയിഗിന്റെയും സംയുക്ത അദ്ധ്യക്ഷതയിൽ മോസ്കോയിൽ ചേർന്നു ഇതിനിടെ റഷ്യൻ പ്രതിരോധമന്ത്രിയുമായും ഉപപ്രധാനമന്ത്രി യൂറി ബോറിസോവുമായും അദ്ദേഹം ചർച്ച നടത്തി സൈനിക പ്രതിരോധ വ്യവസായ മേഖലകളിലെ സഹകരണം ചർച്ചാ വിഷയമായി

അഴിമതിയിൽ കളങ്കിതരായ മന്ത്രിമാരെ നിയമിക്കില്ലെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ശ്രീലങ്കയിലെ അധികാര മോഹമുള്ള രാഷ്ട്രീയ സംസ്ക്കാരം അവസാനിപ്പിക്കുമെന്നും പ്രേമദാസ വൃക്തമാക്കി

സാമ്പത്തിക സ്ഥിരത ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നിവയുടെ പ്രശ്നങ്ങളും ശ്രീമതി

അംഗങ്ങൾ കൈക്കൊണ്ട നടപടികളും സാമ്പൃത്തിക രംഗത്തെ സൈബർ സുരക്ഷ സംബന്ധിച്ചും സമിതി ചർച്ച നടത്തിച്ചു

വോയിസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ കരുത്തിലാണ് ഇന്ത്യയുടെ മിന്നുന്ന വിജയം

രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന കെ

രാഹുലും ശ്രേയസ്സ് അയ്യറും ഇന്ത്യയെ വിജയത്തിൽ എത്തിച്ചു ഇന്ത്യയ്ക്കു വേണ്ടി ചാഹൽ രണ്ട് വിക്കറ്റുകൾ നേടി ദീപക് ചാഹർ ഖലീൽ അഹമ്മദ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി

ചൈനയുടെ ലീ ജുങ് ഹുയി ലിയു യു ചെൻ സഖ്യമാണ് എതിരാളികൾ

പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെട്ടുക്കപ്പെട്ടതിൽ ഷെയ്ക്ക് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാനെ പ്രധാന്റ്മന്ത്രി ്നരേന്ദ്ര മോദി അഭിനന്ദിച്ചു ഖലീഫയുടെ ഭരണത്തിലൂളട്ട ഇന്ത്യ യു എ ഇ